ബാങ്കിന്റേത് ക്രൂരമായ നടപടിയെന്ന് മന്ത്രി ഇ

ബാങ്ക് നടപടി അംഗീകരിക്കാനാവി ല്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ

ൾ ൽ ൾ നെയ്യാറ്റിൻകരയിൽ അമ്മയും മകളും തീകൊളുത്തി മരിച്ച സംഭവത്തിനു പിന്നിൽ കുടുംബപ്രശ്നങ്ങളാണെന്ന് സൂചിപ്പി ക്കുന്ന ആത്മഹത്യാകുറിപ്പ് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാന ത്തിൽ മരിച്ച ലേഖയുടെ ഭർത്താവ് ചന്ദ്രൻ ചന്ദ്രന്റെ അമ്മ കൃഷ്ണമ്മ സഹോദരി ശാന്ത ഭർത്താവ് കാശി എന്നിവരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു ജപ്തിയുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായെന്ന ആരോപണം ഉയ രുന്നതിനിടെയാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്

സ്ത്രീധനത്തിന്റെ പേരിൽ പീഡി പ്പിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കടം തീർക്കാൻ വീട് വിൽക്കാൻ അനുവദിച്ചില്ലെന്നും കത്തിൽ പറയുന്നു നെയ്യാറ്റിൻകര ആത്മഹത്യ് സംഭവത്തിൽ കനറാ ബാങ്കിന്റെ തിരുവനന്തപുരം റീജിണൽ ഓഫീസിനു നേരെ ആക്രമ ണമുണ്ടായി

യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഓഫീസ് തല്ലിത്തകർത്തത് പൊലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി തിരുവനന്തപുരത്തെ ബാങ്കിന്റെ മൂന്ന് ശാഖകൾ ഇന്ന് തുറന്നിട്ടില്ല കനറാ ബാങ്കിന്റേത് ക്രൂരമായ നടപടിയെന്ന് മന്ത്രി ഇ

ഇനിയൊരാൾക്കും ഇത്തരം ഒരനുഭവം ബാങ്കുകളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്നും സംഭവം പരിശോ ധിച്ച് ആവശ്യമായ നടപടി എടുക്കുമെന്നും അദ്ദേഹം തിരുവന ന്തപുരത്ത് പറഞ്ഞു നെയ്യാറ്റിൻകര കനറാ ബാങ്കിന്റെ നടപടി മനുഷ്യത്ഥരഹിതമെന്ന് മന്ത്രി ഇ

മൊറട്ടോറിയം പ്രഖ്യാപനത്തിന് ഒപ്പംനിന്ന ബാങ്കിന്റെ പ്രവൃത്തി ന്യായീകരിക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി

വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥർക്ക് നാളെയും മറ്റന്നാളും പരിശീ ലനം നൽകും

പൊലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റ് ക്രമക്കേട് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ഇടക്കാല റിപ്പോർട്ട് സംസ്ഥാന പൊലീസ് മേധാ വിക്ക് സമർപ്പിച്ചു അന്വേഷണത്തിന് ഒരാഴ്ച സമയം വേണ മെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു കേരളത്തിന് പുറത്ത് തെര ഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്ന പൊലീസുകാരുടെ മൊഴിയെടുക്കാ നാണ് കൂടുതൽ സമയം തേടിയത് പശ്ചിമ ബംഗാളിലെ അക്രമസംഭവങ്ങൾക്കു പിന്നിൽ തൃണ മൂൽ കോൺഗ്രസാണെന്ന് ബിജെപി അധ്യക്ഷൻ അമിത് ഷാ കുറ്റ പ്പെടുത്തി

സിആർപിഎഫിന്റെ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ തൃണമൂൽ പ്രവർത്തകരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമാ യിരുന്നില്ലെന്ന് അദ്ദേഹം കൊൽക്കത്തയിൽ മാധ്യമങ്ങളോട് പറ ഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറ് ഘട്ടത്തിലും പശ്ചിമ ബംഗാളിൽ അക്രമസംഭവങ്ങൾ ഉണ്ടായത് തൃണമൂൽ കോൺഗ്ര സിന്റെ ഭാഗത്തുനിന്നായിരുന്നുവെന്നും അമിത് ഷാ അറിയിച്ചു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മോർഫ് ചെയ്ത ചിത്രം സാമൂഹ്യമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തെന്ന കുറ്റം ചുമത്തി ബിജെപി യുവജനവിഭാഗം നേതാവ് പ്രിയങ്കാശർമ്മയെ തടവിലാക്കിയ നടപടി പ്രഥമദൃഷ്ട്യാ ഏകൃപക്ഷീയമാണെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു ഇന്നലെ പ്രിയങ്കാ ശർമ്മയെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് സൂപ്രീംകോടതി ഉത്തരവ് ഗവൺമെന്റ് നടപ്പാക്കിയില്ലെന്ന് അറിയിച്ചപ്പോഴാണ് കോടതിയുടെ പ്രതികരണം എന്നാൽ അവരെ ഇന്ന് രാവിലെ ജയിൽമോചിത യാക്കിയെന്ന് പശ്ചിമബംഗാൾ ഗവൺമെന്റിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു പത്താം തരം തുല്യതാപരീക്ഷയിൽ ആൾമാറാട്ടത്തിനും വ്യാജ രേഖ ചമച്ചതിനും പൊലീസ് കേസെടുത്തു ന്യൂഡൽഹി കേരള ഹൌസിലെ എട്ട് ജീവനക്കാർക്കെതിരെ പൊതുവിദ്യാഭ്യാസ ഡയ രക്ടർ ജെസി ജോസഫ് സമർപ്പിച്ച അനേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ക്ലാസ്സ് ഫോർ ജീവനക്കാ രായ വാസു മോഹൻ പിള്ള എൽ

അനീഷ് പി ഗോവിന്ദരാ ജ് ജയേഷ് കെ

ഗോപി പ്രസ ന്നൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കേരള ഹൌസിലെ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനായി സം സ്ഥാന സാക്ഷരതാമിഷൻ നടത്തുന്ന പത്താംതരം തുല്യതാപരീക്ഷയി ലാണ് ആൾമാറാട്ടവും വ്യാജരേഖ ചമയ്ക്കലും നടന്നത് നെടു മങ്ങാട് ഗവൺമെന്റ് വി എച്ച്

കോഴിക്കോട് നീലേശ്വരം ഹയർസെക്കന്ററി സ്കൂളിൽ കുട്ടി കൾക്കായി പരീക്ഷയെഴുതിയ അധ്യാപകൻ നിഷാദ് വി മുഹ മ്മദ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി

ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രി സുഷമാസ്വരാജ് അറിയിച്ചു ന്യൂഡൽഹിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ജവാദ് സാരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സുഷമ ഇക്കാര്യം അറിയിച്ചത്

കേരളത്തിൽ ജൂൺ ആറാം തിയ്യതി മാത്രമേ കാലവർഷം എത്തൂ എന്ന് ഇന്ത്യൻ കാലാവസ്ഥാവകുപ്പ് ന്യൂഡൽഹിയിൽ അറി യിച്ചു

ശ്നിയാഴ്ചയോടെ ആൻഡമാൻ തീരമേഖലയിലും ബംഗാൾ ഉൾക്കടൽ പ്രദേശത്തും കാലവർഷത്തിന് അനുകൂലമായ സ്ടാഹചര്യങ്ങൾ ഉണ്ടാകുമെ ന്നാണ് വിലയിരുത്തൽ കാലവർഷം വൈകുമെന്ന് സ്പകാര്യ കാലാവസ്ഥാ പ്രവചന ഏജൻസി സ്കൈമെറ്റും ന്യൂഡൽഹിയിൽ അറിയിച്ചിരുന്നു ജൂൺ നാലോടെ കാലവർഷം തുടങ്ങുമെന്നാണ് അവരുടെ പ്രവചനം രാജ്യത്ത് ഇത്തവണ ശരാശരിയിലും കുറവു മഴയായിരിക്കും ലഭി ക്കുകയെന്നും സ്ക്കൈമെറ്റ് സൂചിപ്പിച്ചു

ഇതിൽ അഞ്ച് ശതമാനത്തിന്റെ ഏറ്റക്കു റച്ചിൽ ഉണ്ടാകാമെന്ന് സ്കൈമെറ്റ് അറിയിച്ചു

ചുരമിറങ്ങുന്ന വാഹനങ്ങൾക്ക് അടിവാരത്ത് പരി ശോധനാ സംവിധാനം ഏർപെടുത്തും കഴിഞ്ഞ ഒരു മാസത്തി നുള്ളിൽ ജില്ലയിൽ അപകടത്തിൽ പെട്ട ആറ് കെഎസ്ആർടിസി ബസുകളിൽ അഞ്ചും മാനന്തവാടി ഡിപ്പോയിലെ ബസുകളിലാ യിരുന്നു

മന്ത്രി യുടെ സാന്നിധ്യത്തിൽ ചേർന്ന സഹകരണ സ്പിന്നിങ് മില്ലിന്റെ ഡയരക്ടർബോർഡ് യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയി ച്ചത്

പദ്ധതി തട സ്സ്പ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി കെഎസ്ഇബി സത്യവാ ങ്മൂലത്തിൽ അറിയിച്ചു

പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഇരു ചക്രവാഹന ങ്ങളുമായി പിടിയിലായാൽ രക്ഷിതാക്കളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകി

എസ്എസ്എൽസി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ താമരശേരി വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർഥികളെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉപഹാരംനൽകി അനുമോദിച്ചു

വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും മികച്ച വിജയം നേടിയ പൂനൂർ ഗ്വ

കോഴിക്കോട്ട് ചക്കിട്ടപ്പാറ വില്ലേജിലെ കൈവശ ഭൂമിയുടെ വസ്തുനികുതി പൂർണമായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷകൻ വില്ലേജ് ഓഫീസിനു മുന്നിൽ നിരാഹാരസമരം തുട ങ്ങി ചക്കിട്ടപ്പാറ മുതുകാട് സ്വദേശി ജോസഫ് ആണ് രാവിലെ നിരാഹാരം തുടങ്ങിയത് കണ്ണൂർ ചാലയ്ക്കടുത്ത് തന്നടയിൽ അമ്മയെയും മകനെയും വീടിനകത്ത് മരിച്ചനിലയിൽ കണ്ടെത്തി മായാ ബസാറിൽ വാട കവീട്ടിൽ താമസിക്കുന്ന രാജലക്ഷ്മിയും രജിത്തുമാണ് മരിച്ചത്

വിഷം അകത്തു ചെന്നാണ് മരിച്ചതെന്ന് സംശയിക്കുന്നതായി പൊലീസ് പറഞ്ഞു